എം കെയേഴ്സ് നിധിയിൽ നിന്നും പണം അനുവദിച്ചു

പ്രധാനമന്ത്രി അഭ്യൂഹങ്ങളിൽ ജ്നങ്ങൾ വഞ്ചിതരാകരുതെന്നും മൻ ക്ലി ബാത്തിൽ ശ്രീ

സ്ഥിരീകരിച്ചത് മൂന്നരലക്ഷത്തോളം പേർക്ക്

ഹൈദരാബാദ് ഡൽഹി മത്സരം പുരോഗമിക്കുന്നു

എ ഓക്സിജൻ ഉത്പ്പാദന് പ്ലാന്റുകൾ സ്ഥാപിക്കുന്ന തിന് പി എം കെയേഴ്സ് നിധ്യിയിൽ നിന്ന് പണം അനുവദിച്ചതായി പ്രധാനമന്ത്രി കാര്യാലയം അറിയിച്ചു നിലവിലെ സാഹചര്യം പ്രിക്ക്ണക്കിലെടുത്ത് പ്രധാനമന്ത്രിയുടെ പ്രത്യേക നിർദേശപ്രക്കാർമാണ് പ്താന്റുകൾ സ്ഥാപിക്കുന്നതിന് തത്തിൽ അംഗീകാര് നൽകിയത് ജില്ലാ ആസ്ഥാനങ്ങളിലെ പ്രധാന ആശുപത്രികളിൽ സ്ഥാപിക്കുന്ന പ്ലാന്റുകളിൽ നിന്ന് അതത് ജില്ലകളിലേക്ക് തടസ്സമില്ലാതെ ഓക്സിജൻ ലഭ്യമാക്കുകയാണ് ലക്ഷ്യം

കോവിഡ് പ്രതിരോധ വാക്സിനുകളുടെ പ്രാധാന്യ ത്തെക്കുറിച്ച് എല്ലാവരും ബോധവാന്മാരാകണം വാക്സിനുകളെ ക്കുറിച്ചുളള അഭ്യൂഹങ്ങളിൽ വഞ്ചിതരാകരുതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പ്രതിമാസ റേഡിയോ പരിപാടി മൻകി ബാത്തിലൂടെ രാജ്യത്തെ ജനങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി വിശദാംശങ്ങളുമായി മൈത്രി

കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായി വാക്സിൻ സ്വീകരിച്ചും മുൻകരുതലെടുത്തും ജനങ്ങൾ സുരക്ഷിതരായി തുടരണം എല്ലാ സംസ്ഥാനങ്ങളും പരമാവധി ആളുകൾക്ക് വാക്സിൻ ആനുകൂല്യം ലഭൃമാക്കണം കോർപ്പറേറ്റ് മേഖലയിലെ കമ്പനികളും തങ്ങളുടെ ജീവനക്കാർക്ക് വാക്സിൻ നൽകുന്ന പരിപാടിയിൽ പങ്കെടുക്കണം ഈ പ്രതിസന്ധിയിൽ നിന്ന് രാജ്യവും ജനങ്ങളും ഉടൻ പുറത്തുവരുമെന്നും പ്രധാനമന്ത്രി പ്രത്യാശ്ശ പ്രകടിപ്പിച്ചു

മുംബൈയിൽ നിന്നുള്ള പ്രശസ്ത ഡോക്ടർ ശശാങ്ക് ജോഷി ശ്രീനഗർ സർക്കാർ മെഡിക്കൽ കോളേജിലെ പ്രൊഫസർ ഡോ നവീദ് നസീർ ഷാ റായ്പൂർ ബിആർ അംബേദ്ക്കർ മെഡിക്കൽ കോളേജിലെ നേഴ്സ് ഭാവന ധ്രുവ് ബാംഗ്ലൂർ കെസി ജനറൽ ആശുപത്രിയിലെ സീനിയർ നേഴ്സിങ് ഓഫീസർ സുരേഖ സിഎടിഎസ് ആംബുലൻസ് ഡ്രൈവർ പ്രേം വർമ്മ കോവിഡ് രോഗമുക്തി നേടിയ ഗുരുഗ്രാമിലെ പ്രീതി ചതുർവേദി എന്നിവരുമായി പ്രധാനമന്ത്രി മൻകി ബാത്തിലൂടെ സംവദിച്ചു

വാക്സിനേഷൻ യജ്ഞം ഫലപ്രദമായി നടപ്പാക്കു ന്നത് സംബന്ധിച്ചുളള മാർഗരേഖ കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി രാജേഷ് ഭൂഷൺ എല്ലാ സംസ്ഥാനങ്ങളിലേയും അഡീഷണൽ ചീഫ് സെക്രട്ടറിമാർക്കും പ്രിൻസിപ്പൽ ്യസ്ത്രകട്ടറിമാർക്കും അയച്ചു

രാജ്യത്തെ പ്രധാന തുറമുഖങ്ങൾക്ക് ഇത് സംബന്ധിച്ചുള്ള നിർദ്ദേശം ഷിപ്പിംഗ് തുറമുഖ മന്ത്രാലയം കൈമാറി

അടുത്ത തിങ്കളാഴ്ച വൈകുന്നേരം അഞ്ചു വരെ ലോക്ഡൌൺ തുടരുമെന്ന് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അറിയിച്ചു കോവിഡ് കേസുകളുടെ അഭൂതപൂർവ്വമായ കൂതിച്ചു ചാട്ടത്തിൽ ഡൽഹിയിലെ ആരോഗൃ സംരക്ഷണ സംവിധാനങ്ങൾ പ്രതിസന്ധിയിലായ പശ്ചാത്തല ത്തിലാണ് ലോക്ഡൌൺ നീട്ടുന്നത്

എങ്കിലും കർശന നിയന്ത്രണങ്ങൾ തുടരാതെ കോവിഡ് പ്രതിരോധം വിജയിക്കില്ലെന്ന വിലയിരുത്തലിലാണ് സംസ്ഥാന സർക്കാർ സമ്പൂർണ ലോക്ഡൌണിനെ അനുകൂലിക്കില്ലെങ്കിലും നിയന്ത്രണങ്ങളെ പിന്തുണയ്ക്കുമെന്നുമുള്ള നിലപാട് സർവകക്ഷി യോഗത്തിൽ സർക്കാരിനെ അറിയിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല വൃക്തമാക്കി ലോക്ക്ഡൌൺ ഇല്ലാതെ തന്നെ നിയന്ത്രണങ്ങൾ തുടരട്ടെയെന്ന് ഇടതു മുന്നണി കൺവീനർ എ വിജയരാഘവനും ലോക്ഡൌൺ ഒഴിവാക്കി സർക്കാർ എടുക്കുന്ന നടപടികൾക്ക് പിന്തുണ നൽകുമെന്ന് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനും പ്രതികരിച്ചു

വോട്ടെണ്ണൽ കേന്ദ്രങ്ങളുടെ എണ്ണം കൂട്ടിയതുൾപ്പെടെയുള്ള പ്രതിരോധ നടപടികൾ തിരഞ്ഞെടുപ്പ് കമ്മീഷനും സ്വീകരിച്ചിട്ടുണ്ട്

തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ട ഗൌരിയമ്മയുടെ അണുബാധ നിയന്ത്രിക്കാനുള്ള പരിശ്രമം തുടരുകയാണ് ഡോക്ടർമാർ പനിയും ശ്വാസംമുട്ടലും ഉണ്ടായതിനെ തുടർന്ന് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഗൌരിയമ്മയെ തിരുവനന്ത പുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്

രാജ്യത്ത് കോവിഡ് വ്യാപനം അതിരൂക്ഷമാകുന്ന പശ്ചാത്തല ത്തിലാണ് നടപടി

രവീന്ദ്ര ജഡേജയുടെ തകർപ്പൻ ഓൾറൌണ്ട് പ്രകടനമാണ് ചെന്നൈയ്ക്ക് വിജയം സമ്മാനിച്ചത് രണ്ടാം മത്സരത്തിൽ ഹൈദരബാദ് ഡൽഹിയെ നേരിടുകയാണ്